ബത്തേരിയിൽ യുവജനസംഘടന കളുടെ ഉപവാസ സമരം ഏഴാം ദിവസത്തേക്ക് കടന്നു

കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്താൻ ഈ മാസം നാലിന് ദുബായിൽ നീം നിക്ഷേപക സംഗമം

ഗാന്ധിജയന്തി വാരാചരണത്തിന് സംസ്ഥാനത്ത് നാളെ തുട ക്കമാവും

അല്പം മുമ്പ് സിവിൽ വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നട ത്തി ഉച്ചയ്ക്ക് ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ട് വയനാ ട്ടിലെ ജനങ്ങൾ നേരിടുന്ന യാത്രാ ദുരിതം അദ്ദേഹത്തെ ധരിപ്പി ക്കും

വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറെയും മുഖ്യമന്ത്രി കണ്ടേ ക്കും വയനാട്ടിൽ നിന്നെത്തിയ സർവ്വക്ക്ഷി സംഘവും കേന്ദ്രമ ന്ത്രിമാരെ നേരിൽ കണ്ട് വിഷയം ചർച്ച ചെയ്യും വയനാട്ടിൽ യാത്രാ നിരോധനത്തിനെതിരെ യുവജന സംഘ ടനകളുടെ ഉപവാസ സമരം ഏഴാം ദിവസത്തേക്ക് കടന്നു രാവിലെ വയനാട് ജില്ലയിലെ വിദ്യാർത്ഥികളെ അണി നിരത്തി പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് മുൻ അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി എം പിയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വയനാട്ടിലെ രാത്രി യാത്രാ നിരോധനവും പ്രളയവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി രാഹുൽഗാന്ധി ഡൽഹിയിൽ പറഞ്ഞു രാത്രി യാത്രാനിരോധനം മൂലമുള്ള ബുദ്ധിമുട്ട് അറിയി ച്ചതായും ഇക്കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താ മെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും രാഹുൽ വ്യക്തമാക്കി മറ്റന്നാൾ വയനാട് സന്ദർശിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

പരിസ്ഥിതി സൌഹൃദ പാലങ്ങളോ തുരങ്കപാതയോ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന് അദ്ദേഹം നിർദേശിച്ചു സുപ്രീംകോടതിയുടെ പരിഗണനയിലിരി ക്കുന്ന കേസിൽ മുതിർന്ന അഭിഭാഷകരെ നിയോഗിച്ച് കേരള ത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ രാത്രി യാത്രാ നിരോധന് വിഷയത്തിൽ സംസ്ഥാന ഗവ

മുഖ്യമന്ത്രി നേരിട്ടു ഇടപെട്ടിരി ക്കുകയാണെന്നും ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു രാത്രിയാത്രാ നിരോധനത്തിൽ സുപ്രീംകോടതി കേരളത്തിനും കർണാടത്തിനും യോജിച്ച നില പാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം സ്ഥകാര്യ വാർത്താചാനലിനോട് പറഞ്ഞു്

പിണ റായി വിജയനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെയും സിബിഐയ്ക്കു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് കേസിൽ ഹാജരായത്

തിരുവനന്തപുരത്ത് മന്ത്രി പി തിലോ ത്തമന്റെ അധ്യക്ഷതയിൽ ചേർന്ന നാഫെഡ് സപ്ലൈകോ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം സപ്ലൈകോയുടെ കൊച്ചി കോഴിക്കോട് കേന്ദ്രങ്ങളിലാണ് സവാള എത്തിക്കുക കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെ കണ്ടെത്താൻ ഈ മാസം നാലിന് ദുബായിൽ നീം നിക്ഷേപക സംഗമം സംഘടിപ്പി ക്കും പ്രവാസി കേരളീയ നിക്ഷേപ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെ ടുക്കും നോൺ കേരളൈറ്റ്സ് എമർജിംഗ് എന്റർപ്രണേഴ്സ് മീറ്റ് എന്ന സംഗമത്തിലേക്ക് വൃത്യസ്ത മേഖലകളിൽ നിന്ന് നിക്ഷേ പകരെ ക്ഷണിച്ചിട്ടുണ്ട് സംഗമത്തിന് മുന്നോടിയായി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മന്ത്രി ഇ പി ജയരാജൻ എന്നിവരുടെ സഹകരണത്തോടെ പുതിയ നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിന് പ്രാഥമിക യോഗം നടത്തിയിരുന്നു പട്ടികജാതി പട്ടികവർഗ്ഗ അതിക്രമ നിരോധന നിയമത്തിൽ വരു ത്തിയ ഭേദഗതി പുനപരിശോധിക്കാൻ സുപ്രീംകോടതി ഡിവി ഷൻ ബെഞ്ച് തീരുമാനിച്ചു ജസ്റ്റിസ് അരുൺമിശ്രയുടെ നേതൃത്വ ത്തിൽ മൂന്നംഗ ബെഞ്ചാണ് ഇതു സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ഹർജി പരിഗണിച്ചത്

ജമ്മു കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടലോ മദ്ധ്യ സ്ഥതയോ അംഗീകരിക്കില്ലെന്ന നിലപാട് വിദേശ കാര്യമന്ത്രി എസ് ജയ്ശങ്കർ ആവർത്തിച്ച് വ്യക്തമാക്കി നാലു പതിറ്റാണ്ടായി ഇന്ത്യയുടെ നിലപാട് ഇതുതന്നെയാണെന്നും ഉഭയകക്ഷി ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് കശ്മീർ പ്രശ്നം കൊണ്ടു പോകരു തെന്നും അദ്ദേഹം വാഷിംഗ്ടണിൽ പറഞ്ഞു ഇന്ത്യക്കും പാ ക്കിസ്ഥാനും ഇടയിൽ മധ്യ സ്ഥ നാകാൻ തയ്യാറാണെന്ന് ഡോണാൾഡ് ട്രംപ് വീണ്ടും പരാമർശിച്ച സാഹചര്യത്തിലാണ് ജയ്ശങ്കറിന്റെ വിശദീകരണം ആയുഷ്മാൻ പദ്ധതി ഒരു വർഷം പൂർത്തിയാക്കു ന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ രണ്ടു ദിവസത്തെ ആരോഗ്യ മൻധൻ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്തിക്കേ ഷനും ആയുഷ്മാൻ ഭാരത് സ്മാർട്ട് ആപ്പ് ഗ്രാന്റ് ചലഞ്ചും ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

നാലോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ഉള്ള സംരംഭങ്ങളിൽ തൊഴിലുടമയ്ക്ക് അപ്രന്റീസുകളെ നിയമിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതോടനുബന്ധിച്ച് ഉന്നതനിലവാരമുള്ളതും നിസ്വാർത്ഥ വുമായ സേവനങ്ങൾക്കായി പുനരർപ്പണം ചെയ്തുകൊണ്ട് നഴ്സിംഗ് ഓഫീസർമാർ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പ്രതിജ്ഞ ചൊല്ലും

സാധാരണ മൺസൂൺ മഴയുടെ പിന്മാറ്റം പടഞ്ഞാറൻ രാജസ്ഥാനിൽ സെപ്റ്റംബർ മാസം ആദ്യത്തോടെയാണ് സംസ്ഥാനത്ത് പൊതുമേഖലാ ബാങ്കുകളുടെ ഏകീകരിച്ച പ്രവൃത്തി സമയം ഇന്ന് മുതൽ പ്രാബലൃത്തിൽ

ഉച്ചയ്ക്ക് രണ്ട് മുതൽ രണ്ടര വരെ ഉച്ച ഭക്ഷണസമയമാണ് സംസ്ഥാനത്ത് ഗാന്ധിജയന്തി വാരാചരണത്തിന് നാളെ തുട ക്കമാവും രാവിലെ തിരുവനന്തപുരം ഗാന്ധിപാർക്കിൽ മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ വാരാചരണത്തിന്റെ സംസ്ഥാനതല പരിപാ ടികൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദിനാചരണത്തിന് തുടക്കം കുറിക്കും മലപ്പുറത്ത് ഗാന്ധിജയന്തി വാരാഘോഷ പരിപാടികൾ നാളെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഗാന്ധി സ്മൃതി അക്ഷരദീപം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാട നവും അദ്ദേഹം നിർവഹിക്കും ചിത്ര പ്രദർശനം പുസ്തകോ ത്സവം ചലച്ചിത്ര പ്രദർശനം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിളം ബര ജാഥ സർവ്വമത പ്രാർത്ഥന എന്നിവയും സംഘടിപ്പിച്ചിട്ടു ണ്ട് ഗാന്ധിക്ജയന്തി വാരാഘോഷത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കണ്ടറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും

ഗാന്ധിജിയെ ആദരിക്കുമ്പോൾ തന്നെ നിന്ദിക്കുന്ന പ്രവണതകളും സമൂഹത്തിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മദൃത്തിന്റെ അതിപ്രസരവും പ്രകൃതി നാശവും ഇതിന് ഉദാഹരണമാണെന്ന് സുധീരൻ ചൂണ്ടിക്കാട്ടി കാസർകോട് പെരിയ ഇരട്ട കൊലക്കേസിൽ അന്വേഷണം സിബിഐയ്ക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പരാജയമാണെന്ന് മുതിർന്ന കോൺഗ്രസ്സ് നേതാവ് വിഎം സുധീരൻ പറഞ്ഞു പോലീസ് സംവിധാനത്തെ ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുക യാണെന്നും സുധീരൻ ആരോപിച്ചു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പലതും പഠി ക്കാനുണ്ടെന്നും അക്രമം രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴു ത്താകും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും സുധീരൻ കോഴിക്കോട് പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ വർദ്ധന

സ്വർണ്ണത്തിന് വീണ്ടും വില കുറഞ്ഞു

ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന വിലയാണ് ഇത് ഇന്നലെ അന്തരിച്ച മുതിർന്ന കഥ കളി കലാ കാ രൻ കോട്ടയ്ക്കൽ ശംഭു എമ്പ്രാന്തിരിയുടെ മൃതദേഹം കോട്ടയ്ക്കൽ നന്തേക്കുളമ്പ് ശ്മശാനത്തിൽ സംസ്കരിച്ചു

കേരളാ കലാമണ്ഡലം അവാർഡും പട്ടിക്കാംതൊടി സ്മാരക പുരസ്കാ രവും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട്

ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ആഭിമുഖൃത്തിൽ നാളെ വൈകീട്ട് കോഴിക്കോട്ട് മാറുന്ന കശ്മീർ ഉയരുന്ന ഭാരതം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചതുമായി ബ്ന്ധപ്പെട്ട ലോക്സഭാ ചർച്ച യിലൂടെ ശ്രദ്ധേയനായ ലഡാക്ക് എം പി ജാമ്യങ് സെറിംഗ് നാംഗ്യാൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലയിൽ ചിലയിടങ്ങളിൽ എഴുത്ത് ലോട്ടറി നടക്കുന്നതായി വിവരം ലഭിച്ചതായും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ശിക്ഷാനടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ അറിയിച്ചു എഴുത്ത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് അറിയിപ്പിൽ വൃക്തമാക്കി കോൺഗ്രസ് നേതാവായ എൻ രാമകൃഷ്ണൻ സമസ്ത മേഖലകളിലും നിറഞ്ഞുനിന്ന പൊതു ജനസേവക നായിരുന്നുവെന്ന് കെ

പി പറഞ്ഞു

രാമകൃഷ്ണന്റെ ഏഴാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം